പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ച്ച് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് ബിൽ ആന്റ് മെല്ലിന്ദാഗേറ്റ്സ് ഫൌണ്ടേഷന്റെ പുരസ്ക്കാരം

ഉത്സവക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ആർ ഒ

ലാന്ററിൽ നിന്നും പ്രഗ്യാൻ എന്ന റോവർ വേർപെട്ട് ഉപരിതലത്തിലേക്കിറങ്ങി പര്യവേഷണം നടത്തും ഇനിയുള്ള ദിവസങ്ങളിൽ രണ്ട്തവണ ഭ്രമണപഥം താഴ്ത്തിലാന്ററിനെ ചന്ദ്രന്റെഏറ്റവും അടുത്ത് എത്തിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വച്ഛ്ഭാരത് യജ്ഞത്തിന്റെ വിജയത്തെ തുടർന്നാണ് ബിൽ ആൻഡ് മെലിന്ദാർ ഗേറ്റ്സ് ഫൌണ്ടേഷൻ പ്രധാനമന്ത്രിയ്ക്ക് പുരസ്കാരം ന്റൽകുന്നത് പ്രധാനമന്ത്രിയുടെ നൂതന സംരംഭങ്ങൾ ലോകശ്രദ്ധ്യ ്നേടിയെടുത്തായി കേന്ദ്ര സഹമന്ത്രി ഡോ

പുരസ്കാര ലബ്ധി ഓരോ ഇന്ത്യൻ പൌരസ്സ്ക് അഭിമാനമേകുന്നതായും അദ്ദേഹം പറഞ്ഞു

ടോക്യോയിൽ നടന്നു പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നടന്ന മന്ത്രിതല യോഗത്തിന് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് രാജ്യരക്ഷാമന്ത്രി തകേഷി ഇവായയും സംയുക്തമായി അധ്യക്ഷത വഹിച്ചു

വോയ്സ് ഇന്ത്യയ്ക്കും ജപ്പാനുമിടയിലെ നയതന്ത്ര സഹകരണത്തിന്റെ പ്രധാന്യം മേഖലയിലെ സമാധാനം സുരക്ഷ സുസ്ഥിരത എന്നിവ മന്ത്രിതല യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു അഞ്ച് ദിവസത്തെ ജപ്പാൻ ദക്ഷിണകൊറിയ സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ടൊക്യോയിൽ ഇന്ന് എത്തിച്ചേർന്നത് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബെയുമായും ശ്രീ

പ്പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള തീവ്രവാദവും ഉഭയക്ക്ക്ഷി ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രിയോട് രാജ്നാഥ് സിംഗ് പറഞ്ഞു

ഈ മാസം ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനാകുമെന്ന് പ്രതീക്ഷ ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസൊ ആബെ ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ പിയും ബജ്റംഗ്ദളും പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ

ഐയിൽ നിന്ന് പണം വാങ്ങിയെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ് വിജയ് സിംഗിന്റെ ആരോപണത്തെ ബി ജെ

ആരോപണം പിൻവലിച്ച് ദിഗ് വിജയ്സിംഗ് മാപ്പുപറയണമെന്ന് ബി ജെ

ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പിയെന്നും അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ നടത്തുന്ന കഴമ്പില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ലജ്ജാകരമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

എക്സ് അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ ക്സ്റ്റഡി ഡൽഹി ഹൈക്കോടതി ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി മൂന്ന് ദിവസത്തെ സി ബി ഐ

ചിദംബരത്തിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും

ചിദംബരത്തെ തിഹാർജയിലിലേക്ക് അയയ്ക്കില്ലെന്നും വിചാരണക്കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സി ബി ഐ

വിചാരണക്കോടതി പുറപ്പെടുവിച്ച റിമാന്റ് ഉത്തരവും ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് സംബന്ധിച്ച പ്രതികരണവും സമർപ്പിക്കാൻ സി ബി ഐ ക്ക് പരമോന്നത കോടതി നിർദ്ദേശം നൽകി

സി

കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ഓണം വിപണിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം കണ്ണൂരിൽ നിർവ്വഹിക്കുകയായിരുന്ന മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസ് കോർപറേഷനും കൺസ്യൂമർ ഫെഡും ഇക്കാരൃത്തിൽ മികച്ച പ്രവർത്തനമാണ് നടത്തി വരുന്നത് വിശേഷ ദിവസങ്ങളിൽ ക്രമാതീതമായി വില കൂടുന്നത് തടയുന്നതിനാണ് വിപണി ഇടപെടൽ കൂടുതൽ ശക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസ്ട് വീളിച്ചു ചേർത്ത എയർലൈൻ മേധാവികളുടെ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണിത് വിമാനക്കമ്പനി അധികാരികൾ സംസ്ഥാന ഗവൺമെന്റിനെ ഇക്കാര്യം അറിയിച്ചു

മരുഭൂവൽക്കരണം തടയുന്ന നടപടികൾക്ക് നേതൃത്വം നൽകാൻ ഇന്തൃയ്ക്കാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു ഇക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ലോകത്തിന് മുന്നിൽ ഈ വിഷയം ശരിയായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ശ്രീ

വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ ഗവേഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള സി

സി

ആർ

നിർമ്മിക്കുന്ന ക്യാമ്പസിൽ ഓഡിറ്റോറിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും കേന്ദ്രമന്ത്രി നിർവ്വഹിച്ചു

നേരത്തേ പ്രവർത്തിച്ചു തുടങ്ങിയ നൂറ്ട്രൈബ്യൂണലുകൾ കൂടാതെയാണ് ഇത്

പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പ്രശ്ന പരിഹാരത്തിന് ലഭ്യമായും എല്ലാ നിയമപരമായ വഴികളും തേടാമെന്നും അതുവ്ട്രെ ് അവർക്കെതിരെ ഒരുതരത്തിലുള്ള നടപടികളും സ്വീകരിക്കുകയില്ലെന്നും മന്ത്രാലയം വൃക്തമാക്കി ഇവർക്ക് വേണ്ട നിയമസഹായം നൽകാൻ സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഷെൻകാകുസ് എന്നറിയപ്പെടുന്ന ചെറു ദ്വീപ് സമൂഹങ്ങൾ ഉള്ള ഈ മേഖലയിൽ ജപ്പാനും ചൈനയും തമ്മിൽ സംഘർഷം നിലനിൽകുന്നുണ്ട് ഇവിടുത്തെ സേനാ വിന്യാസത്തിനായി ബഡ്ജറ്റിൽ കൂടുതൽ തുക വകയിരുത്തുന്നതിന് അപേക്ഷ നൽകിയതായി ജപ്പാന്റെ ദേശീയ പോലീസ് ഏജൻസി അറിയിച്ചു ഈ മേഖലയിലെ ചെറു ദ്വീപുകളുടെ അവകാശത്തിന്മേൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽകുകയാണ്

മിക്സഡ് ഡബിൾസിൽ ഫ്രഞ്ച് യു

സഖ്യത്തോടാണ് ബൊപ്പണ്ണയും അമേരിക്കൻ സഹതാരം അബിഗെയിൽ സ്പിയേർസും പരാജയപ്പെട്ടത്

പത്ത് ദിവസത്തെ ആഘോഷത്തിൽ വിശ്വാസികൾ വീടുകളിൽ ഗണേശവിഗ്രഹങ്ങളുണ്ടാക്കി ആരാധിക്കുന്നു മഹാരാഷ്ട്രയിലെ മുഖ്യ ആകർഷണമായ വിനായക ചതുർത്ഥി

കേരളത്തിലെ വിനായക ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷങ്ങളും പൂജകളും നടക്കുന്നു രാഷ്ട്രപതി രാംനാഥ്കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് വിനായകചതുർത്ഥി ആശംസകൾ നേർന്നു